എഫ് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

ദക്ഷിണകൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുന്ന ഇന്ത്യാ കൊറിയ ഉച്ചകോടിയാണ് സന്ദർശനത്തിലെ പ്രധാന കാര്യ പരിപാടി സന്ദർശനത്തിന്റെ ഭാഗമായി സോളിൽ ഇന്ത്യാ കൊറിയ ബിസിനസ് സിംബോസിയത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

അയോദ്ധ്യയുമായി പുരാതന ബിസ്ടുമുണ്ടെന്ന് കരുതപ്പെടുന്ന കിംഹേ നഗരത്തിന്റെ മേയറുമായി പ്രഢ്നമുന്തി കൂടിക്കാഴ്ച നടത്തും യോൺസെ സർവകലാശാലയുടെ സോൾ കാമ്പസിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ ശ്രീ മോദി അനാഛാദനം ചെയ്യും വൈകിട്ട് ദക്ഷിണകൊറിയയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ആശയവിനിമയവും നടത്തും അന്താരാഷ്ട്ര സഹകരണത്തിനും ആഗോള വളർച്ചയ്ക്കും മാനവ വികസനത്തിനും നൽകിയ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി സോൾ സമാധാന പുരസ്കാരം ശ്രീ

സൌദി കിരീടാവകാശിയുടെ ഇന്ത്യൻ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു

വോയിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇരുരാജൃങ്ങളും ഇത്തരത്തിൽ തീരുമാനമെടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥൂട്ടകരുടെ എണ്ണം രണ്ട് ലക്ഷമാക്കുമെന്ന് സൽമാൻ ഉറപ്പു നൽക്കിട്ടിരായും വിദേശകാരൃ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു സൌദി പൌര്ൻമാർക്ക് ഇ വിസ സൌകര്യം അനുവദിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സഹകരണ് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ആ മേഖലയിൽ നിക്ഷേപത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രാധാന്യം ഇരുരാജ്യങ്ങളും മനസീലാക്കിയതായും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു സൌദിയിലുള്ള് വിദേശ കമ്പനികൾ അടച്ചുപൂട്ടിയത് മൂലം ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യാക്കാർക്ക് വേണ്ട സഹായങ്ങൾ നൽകാമെന്നും സൌദി വ്യക്തമാക്കി

അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപന്നങ്ങൾ എന്നിവയിൽ ഇന്ത്യ നേരിടാൻ ഇടയുള്ള വർദ്ധിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ തന്റെ രാജ്യം സന്നദ്ധമാണെന്നും മുഹമ്മദ് ബിൻ സൽമാൻ ഉറപ്പ് നൽകി

ഇന്ത്യാ പാക് ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ഇരുവിഭാഗവും അഭിപ്രായപ്പെട്ടു

ഭീകരത ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ ലോക രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും സൌദി അറേബ്യയും നിലകൊള്ളുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

മികച്ച വികസന പങ്കാളിയായി ഇന്ത്യ സ്ന്ദ്ദി അറേബ്യയെ വിലയിരുത്തുന്നതായി രാഷ്ട്രപതി പറഞ്ഞു ഢ്ാങ്കേതിക രംഗം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്തൃ ് സൌദി അറേബൃയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്

നാളെ ആന്ധ്രാപ്രദേശിലെ നെല്ലോർ ജില്ലയിലെ വെങ്കിടാചലം സ്വർണ്ണ ഭാരത് ട്രസ്റ്റിന്റെ പതിനെട്ടാമത് വാർഷികത്തിലും അദ്ദേഹംപങ്കെടുക്കും

കുറഞ്ഞ വിഭവശേഷി നേരിടുന്ന സംസ്ഥാനത്ത് വിഘടനവാദി നേതാക്കളുടെ സുരക്ഷയ്ക്കായി വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നത് പാഴ്ചെലവാണെന്നും ഈ തുക മറ്റ് കാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി ഞായറാഴ്ച നാലു ഹുറിയത്ത് നേതാക്കളുടെ സുരക്ഷയും പിൻവലിച്ചിരുന്നു

തലമുറകളായി കൈമാറിവരുന്ന അനുഭവ സമ്പത്തുകളാൽ സമൃദ്ധമാണ്ട് ഓരോ ഭാഷയെന്നും അതിനാൽ ഓരോ ഭാഷയ്ക്കും സംഭൂപ്പിക്കുന്ന അപചയം പൈതൃക നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ബാഗ്പാത് ജില്ലയിൽ ജല ഗതാഗത തുറമുഖം നിർമിക്കുമെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു

സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ശ്രീ ഗഡ്കരി മുസാഫർനഗർ ബുലന്ദ്ഷെഹർ ജില്ലകളിൽ റോഡ് നിർമാണ പ്രവർത്തനങ്ങളുടെയും മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെയും ശിലാസ്ഥാപനവും നിർവ്വഹിക്കും

ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്തും ചടങ്ങിൽ സംബന്ധിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് തീ പിടുത്തമുണ്ടായത്

വാതക സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നതെന്നും മരണ സംഖ്യ വർദ്ധിക്കാനിടയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ഇന്ത്യയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും വലിയ വളർച്ച ഉണ്ടായി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം സർക്യൂട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ണൂർ തളിപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ബെംഗളൂരു നഗരത്തിലെ എയർഫോഴ്സ് ബെയ്സിലാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്

പഭൂതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിലെ കൽപ്പറ്റയിൽ മന്ത്രി എ

നിരാശ്രയരായ അഗതി കുടുംബങ്ങളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്ന ആശ്രയ പദ്ധതി വിപുലീകരിച്ചാണ് അഗതിരഹിതകേരളം പദ്ധതി നടപ്പാക്കുന്നത്